ശബരിമല വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസം ബോർഡ് വിളിച്ച വിവിധ സംഘടനകളുട്ടെ യോഗം ഇന്ന് രാവിലെ തിരുവന്തപുരത്ത് എംഎൽഎമാരുടെ വിദേശയാത്രക്ക് കേന്ദ്രത്തിന്റെ മുൻകൂർ അനുമതി ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനങ്ങൾ ഉത്തരവുകൾ എന്നിവ വിജിലൻസിന് അന്വേഷിക്കാനാവില്ലെന്ന് ഹൈക്കോടതി

ൾ ൽ ൾ പ്രളയം തകർത്ത കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച ക്രൌഡ് ഫണ്ടിങ്ങിന് ഇന്ന് തുടക്കമാകും പുനർനിർമ്മാണ പുനരധിവാസ പദ്ധതികൾക്ക് സംഭാവന നൽകുന്നതിന് തയാറാക്കിയ ക്രൌഡ് ഫണ്ടിങ്ങ് വെബ് പോർട്ടൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വൃക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പദ്ധതികൾക്ക് പോർട്ടൽ വഴി സംഭാവന നൽകാനാകും നിർമ്മാണ രംഗത്ത് വിശ്വാസൃതയും അംഗീകാരവും തെളിയിച്ച ഏജൻസികൾക്കായിരിക്കും പുനർനിർമ്മാണ ത്തിന്റെ ചുമതല കേരളത്തിലെ പ്രളയ നഷ്ടത്തിന്റെ അന്തിമ കണക്ക് തയാറാക്കാൻ ലോക ബാങ്ക് എഡിബി സംഘം ഇന്ന് സംസ്ഥാനത്തെത്തും മുഖ്യമന്ത്രിയുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും

പ്രളയത്തെ തുടർന്ന് കാർഷിക മേഖലയിൽ പത്തൊൻപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ശാസ്ത്രീയ കൃഷിയിലൂടെ ഇത് മറികടക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വി

സുനിൽകുമാർ ചെങ്ങന്നൂരിൽ അറിയിച്ചു അടുത്ത വർഷം ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മുറ്റത്തൊരു നേന്ത്രക്കുല പദ്ധതി നടപ്പാക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച് ചേർത്ത വിവിധ സംഘടനകളുടെ യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും നന്തൻകോട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ തന്ത്രി സമാജം പന്തളം കൊട്ടാരം അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം തന്ത്രിമാർ താഴ്മൺ കൂടുംബം യോഗ ക്ഷേമ സഭ എന്നിവയുടെ പ്രതിനിധികളുമായാണ് ചർച്ച മകരവിളക്കിന് സന്നിധാനത്തെ ഒരുക്കങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ദേവസ്ഥം ബോർഡ് അറിയിച്ചു യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം പ്രസിഡന്റ് പി

ശശികുമാര വർമ്മ പന്തളത്ത് അറിയിച്ചു

തുലാമാസ പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകീട്ട് അഞ്ചിന് നട തുറക്കും മറ്റന്നാൾ ഉഷ പൂജക്ക് ശേഷം ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ പുതിയ മേൽശാന്തിമാരെ നിശ്ചയിക്കുന്നതിന് സന്നിധാനത്ത് നറുക്കെടുപ്പ് നടക്കും

സുപ്രീം കോടതി വിധിക്കെതിരെ ബിജെപ്പിയും മറ്റു ചില സംഘടനകളും സമരം ശക്തമാക്കിയ സ്നാഹചര്യത്തിൽ ശബരിമലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു കെപിസിസി തീരുമാനമുസരിച്ച് കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നാളെ ശബരിമലയിൽ ഉപവാസമിരിക്കും ശബരിമല വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാടറിയിക്കാൻ മറ്റന്നാൾ ഹൈക്കമാന്റുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തും ശബരിമലയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ സൂരക്ഷയും ഗതാഗത്യ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ അറിയിച്ചു നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കെഎസ്ആർടിസി പ്രത്യേക ബസുകൾ ഓടിക്കും യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ കണ്ണൂരിലെ യുവതി ശബരിമലയിൽ വരില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്ഥം ബാർഡ് പ്രസിഡന്റ് എ

പേരെടുക്കാനാണെങ്കിൽ അവർ വന്നേക്കാമെന്നും പത്മകുമാർ അഭിപ്രായപ്പെട്ടു ആചാരങ്ങൾ പാലിക്കുന്ന ഒരു യുവതിയും ശബരിമല ദർശനത്തിന് തയാറാവില്ലെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ

വീറും വാശിയും കാണിക്കേണ്ട സ്ഥലമല്ല ശബരിമല ചില സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകുമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരണ കൊണ്ടാണെന്നും സുധാകരൻ മാധ്യമങ്ങളോടു പറഞ്ഞു

ശ്രീരാമ കൃഷ്ണൻ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചു കേരളത്തിലെ ചില എംഎൽഎമാർ മുൻകൂർ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തുന്നതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിയമസഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരുന്നു ഇതേതുടർന്നാണ് ചട്ടലംഘനം ഉണ്ടാകരുതെന്ന് കാണിച്ച് സ്പീക്കർ നിർദേശം പുറപ്പെടുവിച്ചത്

ഇന്നു കൂടി അനുമതി ലഭിക്കാതിരുന്നാൽ മന്ത്രിമാരുടെ വിദേശ യാത്ര തടസപ്പെട്ടേക്കും ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനങ്ങൾ ഭരണപരമായ ഉത്തരവുകൾ എന്നിവ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി അന്വേഷിക്കാനാ വില്ലെന്ന് ഹൈക്കോടതി വൃക്തമാക്കി അഴിമതിയോ ഖജനാവിന് സാമ്പത്തിക നഷ്ടമോ ഉണ്ടെങ്കിൽ മാത്രമേ ്കേസ്സെടുക്കാവു എന്നും ഹൈക്കോടതി നിർദേശിച്ചു രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കെ ശങ്കർറെഡ്ഡി ഉൾപ്പെടെ നാലൂപേർക്ക് ഡിജിപി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് നാടിന് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മുടക്കങ്ങൾ ഉണ്ടാകരുതെന്നാണ് ഗവൺമെന്റിന്റെ ്താൽപര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് നീലേശ്വരം കാര്യംകോട് പുഴയിൽ നിർമ്മിക്കുന്ന പാലായി വളവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസി ങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന യുവജന കമ്മീഷൻ മാജിക് അക്കാദമിയുമായി ചേർന്ന് കോളജുകളിൽ സംഘടിപ്പിക്കുന്ന മൈ കേരള മെന്ററിങ്ങ് യങ്ങ് കേരള പരിപാടിക്ക് ഇന്ന് തുടക്കമാകും തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളജിൽ മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും നവകേരള സൃഷ്ടിക്ക് വിസ്മയ യുവത്വങ്ങൾ മുന്നോട്ട് എന്ന ആശയത്തോടെ യുവജനങ്ങളെ പ്രചോദിപ്പിക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

മിനി ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ ലൈബ്രറി മീഡിയാ ഹാൾ എന്നിവയുൾപ്പെട്ട നാലു നില കെട്ടിടമാണ് കണ്ണൂരിൽ നിർമ്മിച്ചിരിക്കുന്നത് യൂത്ത് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ പൂരുഷ വനിതാ ടീമുകൾ ഇന്നലെ ഇരട്ട വെള്ളി നേടി ബ്യൂണസ് അയേഴ്സിൽ പുരൂഷ ടീം മലേഷ്യയോടും വനിതകൾ അർജന്റീനയോടും പരാജയപ്പെട്ടു മൂന്ന് സ്വർണവും ഏഴ് വെള്ളിയും നേടിയ ഇന്ത്യ മേളയിൽ പത്താം സ്ഥാനത്താണ്

ഏഴ് വിക്കറ്റിനാണ് കേരളത്തിന്റെ വിജയം

ഇന്ന് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടേബിൾ ടെന്നീസ് ബാഡ് മിൻഡൻ മത്സരങ്ങൾ നടക്കും

പാലക്കോട്ട് കാഴ്ച്ചാപരിമിതരുടെ ദക്ഷിണേന്ത്യൻ ചെസ് ടൂർണമെന്റിൽ തമിഴ്നാടിന്റെ ഹരിഹരൻഗാന്ധി ചാമ്പൃനായി

ഭരണഘടനയെ ജനങ്ങൾക്ക് വേണ്ടി ശരിയായി നിരീക്ഷിക്കുകയാണ് കോടതികൾ ചെയ്യുന്നതെന്ന് മന്ത്രി ഇ

എല്ലാ ജാതിമതസ്ഥരേയും ഒരേ പോലെ ചിന്തിയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഭരണഘടന കാത്തു സൂക്ഷിക്കണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് സംഘടിപ്പിച്ച അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി നാളെ സംസ്ഥാനത്തെ ഉന്നതിവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു അസ്കൂളുകൾക്ക് നേരത്തെ അവധി നൽകിയിരുന്നു

ഉച്ചകഴിഞ്ഞ് സ്കൂൾ പാർലമെന്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തണമെന്നാണ് നിർദേശം

തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവത്തിന് നാളെ തിരി തെളിയും വൈകീട്ട് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും

അടുത്ത ഹജ്ജിന് കൊച്ചിയും കോഴിക്കോടും ഹാജിമാരുടെ പുറപ്പെടൽ കേന്ദ്രങ്ങളാക്കാൻ തീരുമാനമായി കേന്ദ്ര ഹജ്ജ് കമ്മറ്റി നേതൃത്വുമായി സംസ്ഥാന ഹജ്ജ് കമ്മറ്റി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് അപേക്ഷാ പത്രത്തിൽ രണ്ട് പുറപ്പെടൽ കേന്ദ്രങ്ങളുടെയും പേരുകൾ ചേർക്കാനും ഹാജിമാർക്ക് ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനും സാധിക്കും

പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിലെ മൂന്ന് മാസത്തെ പുഷ്പമേളക്ക് തുടക്കമായി പ്രളയത്തെ തുടർന്ന് നിശ്ചലമായ മൂന്നാർ ടൂറിസത്തിന് ഉണർവു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇൻസ്ട്രമെന്റ് ലാന്റിംഗ് സംവിധാനത്തിന്റെ കാലിബ്രേഷൻ നടത്തുന്നതിനായി എയർപോർട്ട് അതോറിറ്റിയുടെ ഡോണിയർ വിമാനം ഇന്നലെ റൺവേയിലിറങ്ങി ഇത് മൂന്നാം തവണയാണ് കാലിബ്രേഷൻ നടത്തുന്നത് രണ്ട് തവണ വിമാനം റൺവേയിൽ ലാന്റ് ചെയ്തു കൊല്ലം ജില്ലയിൽ പ്രളയകാലത്ത് നദികളോടു ചേർന്ന് അടിഞ്ഞു കൂടിയ മണൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു